അപലപനീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിൽ മല്ല്ബാർ മേഖലയിൽ ആകാശ വിസ്മയം പൂർണ്ണമായി ക്യാണ്ടാം

വൈ ഫൈ സേവനം ലഭൃമാക്കുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രപസാദ്

വർഷം വിരമിക്കും

ലഖ്നൌവിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചവർ മൌലികാവകാശങ്ങളും കർത്തവൃങ്ങളും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്നത് തിരിച്ചറിയണം അക്രമം നടത്തിയവർ ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം ഊഹാപോഹങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കരുത് അഭൂതപൂർവ്വമായ നേട്ടങ്ങളുമായാണ് രാജ്യം പുതുവർഷത്തേക്ക് കടക്കുന്നത്

നിലവിലുള്ള പ്രശ്നങ്ങളും സമാധാനപ്പര്യമായി പരിഹരിക്കാനാണ് രാജ്യമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഏശ്യമ്മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലഖ്നൌവിൽ അടൽ ബിഹാരി വാജ്ട്പേയി ആരോഗ്യ സർവ്വകലാശാലയ്ക്ക് പ്രധാനമൂന്ത്രി ന്രേന്ദ്രമോദി തറക്കല്ലിട്ടു ലഖ്നൌ ഭവനിൽ നിർമ്മിച്ച ശ്രീ അടൽ പ്ഷിഹാരി വായ്പേയിയുടെ പ്രതിമയും അദ്ദേഹം അനാച്ഛാദനം ക്ഷ്യ്തു

ന്യൂഡൽഹിയിൽ അടൽ ഭൂജൽ യോജന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജല ദൌർലഭ്യം വ്യക്തികളേയും കുടുംബങ്ങളേയും മാത്രമല്ല രാജ്യ വികസനത്തെ തന്നെ ബാധിക്കും

തുടർന്ന് മൂന്നു സാഗരങ്ങൾ സംഗൃമിക്കുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദപാറ രാഷ്ട്രപതി സ്ന്ദർശിച്ചു

സൂര്യന്റെ പ്രഭാമണ്ഡല ഭാഗം ഒരു വലയം പോലെ കാണപ്പെടുന്ന ഗ്രഹണമാണ് വലയ സൂര്യഗ്രഹണം

നഗ്ന നേത്രങ്ങൾകൊണ്ട് ഗ്രഹണം വീക്ഷിക്കരുതെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ഇ സൌദി അറേബ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലയ ഗ്രഹണം പൂർണ്ണമായിരിക്കും

തെക്കൻ ജില്ലകളിൽ ഒരു ഭാഗം അല്പം മറഞ്ഞ രീതിയിലുള്ള വലയ ഗ്രഹണമായിരിക്കും ദൃശ്യമാവുക

സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പൊതുജനങ്ങൾക്ക് ഗ്രഹണം കാണാനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ചന്ദ്രൻ ഭൂമിയ്ക്കും സൂര്യനുമിടെ നേർരേഖയിൽ വരികയും സൂര്യന്റെ പ്രഭാമണ്ഡലഭാഗം ഒരു വലയം പോലെ ദൃശ്യമാവുകയും ചെയ്യുന്നതാണ് വലയ സൂര്യഗ്രഹണം ഈ ദശാബ്ദത്തിലെ അവസാനത്തെ സൂര്യഗ്രഷ്ടണമാണിത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിനാൽ ഗ്രഹണം വീക്ഷിക്കുന്നതിന് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ സൺഗ്ലാസുകളോ ഫിൽറ്റർ ഗ്ലാസുകളോ സൂര്യഗ്രഹണം കാണുവാൻ ഉപയോഗിക്കരുത് പ്രത്യേകമായി തയ്യാറാക്കിയ സോളാർ ഫിൽറ്റർ കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സൂര്യനെ ഈ സമയത്ത് വീക്ഷിക്കാം കൃാമറ ബൈനോക്കുലർ എന്നിവ ഉപയോഗിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കുന്നതും അവയിൽ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നതും നന്നല്ല നിർദ്ദേശങ്ങൾ പാലിച്ചും കുട്ടികൾക്ക് പ്രത്യേകം മാർഗ്ഗനിർദ്ദേശം നൽകിയും മാത്രമേ സൂര്യഗ്രഹണം കാണാൻ പാടുള്ളു

വിവിധ ശാസത്ര സംഘടനകളും ഗ്രന്ഥശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കന്നത്

അതിനിടെ സൂര്യഗ്രഹണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ പുണ്യസ്നാനു ന്ടുത്തും

ഒഡീഷയിലെ ഭുവനേശ്വരിലെ എയിംസിൽ അടൽബിഹാരി വാജ്പേയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഹരിയാനയിൽ ഗുരാവാര ഡിജിറ്റൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം

ഹരിയാന പഞ്ചാബ് ജമ്മു ലേ എന്നിവിടങ്ങളിൽ അത്രിശൈത്യം തുടരുകയാണ്

എട്ടു തവണ ഡബിൾസ് ഗ്രാൻസ് സ്ലാമും പത്ത് തവണ മിക്സഡ് ഗ്രാൻസ് സ്താം കിരീടവും ചൂടിയിട്ടുണ്ട്

ഏഴുതവണ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏക ടെന്നീസ് താരം കൂടിയാണ് പേസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണ്

കേന്ദ്ര സഹമന്ത്രി വി

കുട്ടികൾക്ക് പഠനത്തിനൊപ്പം കായിക വിനോദങ്ങൾക്കും പ്രാധാന്യമുള്ള അന്തരീക്ഷമൊരുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ശ്രീ

ലീഗിലെ ആദ്യ മത്സരത്തിൽ വനിതാവിഭാഗത്തിൽ കേരള ക്വീൻസ് സി

വനിത പുരുഷ വിഭാഗങ്ങളിലായി ഹരിയാന റെയിൽവേ സി ഐ എസ്

കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോട് ഇതിനായി ഔദ്യോഗിക പദ്ധതിരേഖ സമർപ്പിക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്